രൂപീകരിക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങി മിസോറമിൽ എം

എഫും തെലങ്കാനയിൽ ടി

സഹായിക്കുമെന്ന് പ്രധ്യാന്മ്യന്ത്രി നരേന്ദ്രമോദി

എഫ് പ്രതിഷേധത്തെ തുടർന്ന് കേരള നിയമസഭാ ഇന്നും പ്രക്ഷുബ്ധമായി

നിലവിലെ ഭരണകക്ഷിയായ ബി ജെ പിക്ക് എതിരെ മികച്ച ഭൂരിപക്ഷം നേടിയ കോൺഗ്രസാണ് ഇരു സംസ്ഥാനങ്ങളിലെ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി മധ്യപ്രദേശിൽ കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്ന നിലക്ക് ഗവൺമെന്റ് രൂപീകരിക്കാൻ ഗവർണർ കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടുണ്ട് മധ്യപ്രദേശിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ബിഎസ്പി അദ്ധ്യക്ഷ്ട മായാവതി വ്യക്തമാക്കിയതോടെ ഗവൺമെന്റ് രൂപ്പീക്ർത്തിനുള്ള സാധ്യത തെളിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ പ്പിളിച്ചു്ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ്രമായിാവതി പിന്തുണ പ്രഖ്യാപിച്ചത് വിശദ വിവരങ്ങളുമായി ലക്ഷ്മി പ്രദീപ്

കോൺഗ്രസിന്റെ ആശയങ്ങളോട് യോജിക്കാൻ കഴിയില്ലെങ്കിലും ബിജെപി അധികാരത്തിലെത്തുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് കുമാരി മായാവതി പറഞ്ഞു രാജസ്ഥാനിലും കോൺഗ്രസിന് പിന്തുണ നൽകുമെന്നും അവർ അറിയിച്ചു തെലങ്കാനയിൽ ടിആർഎസ് തുടർച്ചയായി രണ്ടാമതും ഗവൺമെന്റ് രൂപീകരിക്കും

പിയും നേടി

പി ആറും ആർ

മിസോറമിൽ കോൺഗ്രസിനെ പിന്തള്ളിയൂ മിസോ നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തെലങ്കാനയിൽ ടി

എസ് നേതാവ് കെ ചന്ദ്രശേഖര റാവുവിനെയും മിസോ നാഷണൽ ഫ്രണ്ടിനെയും പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു തോൽവി ബി ജെ പി അംഗീകരിക്കുന്നതായും ജയവും പരാജയവും ജീവിതത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

സംരംഭകത്വ പരിശീലനം ഔഷധോൽപാദനം വിജ്ഞാന കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇന്ത്യ സഹായിക്കുകയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂഡൽഹിയിൽ നടന്ന നാലാമത് പാർട്ടിസിപ്പേറ്ററി ഫോറത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

കൌമാരക്കാരുടെ ആരോഗ്യത്തിൽ പുരോഗതി നേടിയിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽലും ഇന്ത്യയ്ക്ക് ഇടം പിടിക്കാനായി മികച്ച ഉൽപാദനത്തിന് കൂടുതൽ പണം വകയിരുത്തണമെന്ന മനോഭാവം മാറ്റണം

ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെങ്കിൽ അമ്മമാരും ആരോഗ്യവതികളാകണം കഴിഞ്ഞ നാലു വർഷത്തിനിടെ രാജ്യത്തിന് നിരവധി നേട്ടങ്ങൾ കൈവരിക്കാനായതായും ശ്രീ

ലോക്സഭയിൽ റാഫേൽ വിമാന ഇടപാടിനെ ചൊല്ലിയുണ്ടായ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് സഭ പിരിയാൻ കാരണമായത് ഇടപാട് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കാവേരി നദിയിൽ ഡാം നിർമ്മിക്കുന്നതിന് എതിരെ എ

ആന്ധ്രപ്രദേശിന് പ്രത്യേക സാമ്പത്തിക സഹായം നൽകാത്തതിനാലാണ് ട്ടി ഡി

അയോധ്യയിൽ രാമക്ഷേത്രം പ്രണിയണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു കർഷക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എ

ഡി എം

കെയും പ്രതിഷേധിച്ചതിനെ തുടർന്ന് രാജ്യസഭയിൽ നടപടികൾ തടസ്സപ്പെട്ടു രാജ്യസഭ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിർത്തി വച്ചു

രാജ്യത്തോടൊപ്പം രാജ്യസഭയും മേരികോമിന്റെ നേട്ടത്തിൽ അഭിമാനം കൊള്ളുന്നതായി ചെയർമാൻ വെങ്കയ്യ നായിഡു പറഞ്ഞു ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയ സോണിയ ചഹലിനെയും വെങ്കല ജേതാക്കളായ സിമ്രാൻജിത് കൌർ ലൌലിന എന്നിവരെയും ശ്രീ

ജില്ലാ പരിഷത്തിലേയ്ക്കായി നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി പത്ത് സീറ്റുകളിലും കോൺഗ്രസ് ആറ് സീറ്റുകളിലും അസം ഗണ പരിഷത്ത് നാല് സീറ്റുകളിലും ലീഡ് നേടിയുണ്ട്

പദ്ധതി രാജ്യത്തെ ആരോഗൃ മേഖലയുടെ നാഴികക്കല്ലാണെന്നും ശ്രീ നരേന്ദ്ര മോദി ട്വീറ്റ് ചെയ്തു

അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ പേരാണ് യൂണിവേഴ്സിറ്റിയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ലക്നൌവിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം

ലെസർ ഹിമാലയത്തിൽപ്പെടുന്ന ധർമശാല സോലാംഗ് തൽഹ മാർഹി മണാലി കൽപ്പ സംഗ്ല ചിത്കുൽ കിന്നാർ ഷിർഗണ്ഡ് എന്നിവിടങ്ങളിലും താപനില പൂജ്യത്തിന് താഴേയ്ക്ക് അടുക്കുകയാണ്

മഞ്ഞു വീഴ്ചക്കൊപ്പം നേരിയ തോതിൽ മഴ പെയ്യുന്നതും വിനോദ സഞ്ചാരത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹിമാചൽ പ്രദേശിലെ ജനജീവിതം ദുഷ്കരമാകുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

്സഭ ആരംഭിച്ച ഉടൻതന്നെ ശബരിമല വിഷയത്തിൽ മുദ്രാവാകൃം വിളികളുമായി പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ മുന്നിൽ പ്രതിഷേധം നടത്തി ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കുക എന്നതായിരുന്നു പ്രധാന ആവശ്യം

ഈ രീതി ശരിയല്ലെന്നും ഇത് സഭയോടുള്ള അവഹേളനമാണെന്നും സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ഇത് നിർഭാഗ്യകരമാണെന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സഭാനടപടികൾ തടസപ്പെടുത്തുന്നത് ശരിയല്ലെന്നും സ്പീക്കർ ആവർത്തിച്ച് പറഞ്ഞു

മികച്ച സിനിമയ്ക്കും മികച്ച സംവിധായകനുമുള്ള പുരസ്കാരങ്ങൾ മേളയിൽ സമ്മാനിക്കും മാധ്യമ റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം മന്ത്രി എ

ഇതിന്റെ ഭാഗമായി എല്ലാ കേന്ദ്രങ്ങളിലും ലാബുകൾ ആരംഭിക്കും ഡയബെറ്റിക് ഫൂട്ട് റെറ്റനോപതി തുടങ്ങിയവയിൽ ഡോക്ടർമാർക്ക് പരിശീലനം നൽകുന്നതിന് സൌകര്യമൊരുക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു

ഞായറാഴ്ചവരെ കടൽ പ്രക്ഷുബ്ധാമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

പണം തട്ടിയെടുത്ത് ഒരാൾക്കും രാജ്യത്തുനിന്നും രക്ഷപ്പെടാനാവില്ലെന്ന സന്ദേശം കൂടുതൽ വൃക്തമായതായി എസ്

ഐ ചെയർമാൻ രജ്നീഷ് കുമാർ മുംബൈയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മല്യയുടെ കൈമാറ്റം രാജ്യത്തെ വായ്പ്പു കൊടുക്കൽ വാങ്ങൽ നടപടികളിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു